പശ്ചാത്തലത്തിൽ മുഖ്യമത്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് എം

പകരം മിർ മുഹമ്മദിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജ് വഴി സ്വർണ്ണം കടത്തിയ കേസിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നതിനെ തുടർന്നാണ് മാറ്റിയത്

ടി സെക്രട്ടറി കൂടിയാണ് എം ശിവശങ്കർ അതിനിടെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയും ഡി

ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ് ്സ്ംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി

ശിവശങ്കറെ മാറ്റിയതോടെ ബിജെപിയുടെ വാദഗതികൾ ശരിയാണെന്ന് തെളിഞ്ഞതായി പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

അദ്ദേഹത്തിന്റെ താൽപ്പര്യം മൂലമാണ് ഐ ടി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശിവശങ്കറെ മാറ്റാതിരുന്നതെന്നും ശ്രീ

ജി